കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ ആരംഭിച്ച സർവീസുകളുടെ നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ ഉറപ്പു ലഭിച്ചതായും മുഖ്യമന്ത്രി സംസ്ഥാനത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം ഒരുക്കാ നാണ് ഗവൺമെന്റിന്റെ ശ്രമമെന്ന് മന്ത്രി ഇ പി ജയരാജൻ സംസ്ഥാന ബജറ്റ് വരുന്നതോടെ ഗവൺമെന്റിനെതിരായ വിമർശനങ്ങൾ അവസാനിക്കുമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറിയേറ്റ് കലക്ട്രേറ്റ് ഉപരോധ സമരം തുടങ്ങി സംസ്ഥാനത്ത് അക്രമങ്ങളും കൊലപാതകങ്ങളും സാധാര ണമായിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല

മോശം കാലാവസ്ഥയെ തുടർന്ന് കളി നിർത്തിവെച്ച മത്സരം പുനരാരംഭിച്ചു ൾ ൽ ൾ ദേശീയപാത വികസനം നടക്കില്ലെന്ന് ചിന്തിക്കുന്ന ആരും സംസ്ഥാനത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ധർമ്മടത്ത് അഭിപ്രായപ്പെട്ടു ഇത് ഗവൺമെന്റിന് പ്രത്യാശ നൽകുന്ന കാരൃമാണ് മലയോര ഹൈവേയും തീരദേശ ഹൈവേ യുമാണ് ഗവൺമെന്റിന്റെ അടുത്ത ലക്ഷ്യമെന്ന് കുടുംബശ്രീ സംഘടിപ്പിച്ച കൂടുംബസംഗമത്തിൽ അദ്ദേഹം പറഞ്ഞു

അന്നത്തെ കോൺഗ്രസ്റ് കണ്ണൂർ വിമാന ത്താവളത്തെ എതിർക്കുന്ന നിലപാടാണ് സ്ട്രീകരിച്ചതെന്ന് മുഖ്യ മന്ത്രി കുറ്റപ്പെടുത്തി ശബരിമല കേന്ദ്രമാക്കി വിമാനത്താവളത്തിന് ഈ ഗവ തുടക്കമിട്ടതായും അത് യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമി ക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു എയർ ഇന്ത്യ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ആരംഭിച്ച വിദേശ സർവ്വീസുകളുടെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെ ടുത്തി

വയനാട്ടിലും ബേക്കലിലും എയർ സ്ട്രിപ്പുകൾ ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് വ്യവസായ സൌഹൃദ അന്തരീഷം ഒരുക്കുന്ന നയത്തിനാണ് എൽ ഡി എഫിന്റെ മുഖ്യപരിഗണനയെന്ന് മന്ത്രി ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു

നിക്ഷേപ സൌഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്ന തിന് പുറമെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണി കണ്ടെ ത്തുന്നതിനും വ്യവസായ വകുപ്പ് മുഖ്യപരിഗണ്ന നൽകും ആല പ്പാട്ടെ കരിമണൽ ഖനനം നിർത്തിവെയ്ക്കില്ല കരിമണൽ പ്രകൃതി നൽകുന്ന സമ്പത്താണ്

ഇതിന് ശാസ്ത്ര സാങ്കേതിക മേഖല യിലെ വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കണമെങ്കിൽ ഗവ അതിനും തയ്യാറാണെന്ന് മന്ത്രി വൃക്തമാക്കി സംസ്ഥാന ബജറ്റ് വരുന്നതോടെ ഗവൺമെന്റിനെതിരായ വിമർശനങ്ങൾ അവസാനിക്കുമെന്ന് മന്ത്രി ഡോ തോമസ് ഐസ ക് തിരുവനന്തപുരത്ത് പറഞ്ഞു പുനർ നിർമ്മാണ പ്രവർത്തന ങ്ങളുടെ കൃത്യമായ ചിത്രം ബജറ്റിലൂടെ ജനങ്ങൾക്ക് ലഭിക്കും പുനർ നിർമ്മാണ പദ്ധതികളുടെ പ്രഖ്യാപനം ബജറ്റിലുണ്ടാകു മെന്നും ഡോ

സംസ്ഥാനത്ത് ഭരണസ്തംഭനമെന്ന് ആരോപിച്ച് യു ഡി എഫ് നേതൃത്വത്തിൽ സെക്രട്ടറിയേറ്റിലും കലക്ട്രേറ്റുകളിലും ഉപരോധ സമരം തുടങ്ങി സെക്രട്ടറിയേറ്റിനു മുന്നിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉപരോധം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാ നത്ത് പ്രളയാനന്തരം പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുന്നി ല്ല ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു ശബരിമല വിഷ യത്തിൽ വിശ്വാസികളെ ഗവ വഞ്ചിച്ചു എന്നീ കാര്യങ്ങൾ ഉന്ന യിച്ചാണ് ഉപരോധം

സെക്രട്ടറിയേറ്റിന്റെ നോർത്ത് വെസ്റ്റ് കവാടങ്ങളാണ് പ്രവർത്ത കർ ഉപരോധിക്കുന്നത് ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും തട യില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ജില്ലകളിൽ കലക്ട്രേ റ്റുകൾക്ക് മുന്നിലാണ് ഉപരോധം കോഴിക്കോട്ട് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമച ന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു ഈ നാടുകണ്ട ഏറ്റവും ദുർബ ലനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് മുല്ലപ്പള്ളി ആരോപിച്ചു

സാധാ രണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ യെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സെക്രട്ടറിയേറ്റിന് മുന്നിൽ യു ഡി എഫിന്റെ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല മുൻ ഗവ തുടങ്ങിവെച്ച പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക മാത്ര മാണ് മന്ത്രിമാരുടെ ജോലി

പ്രളയത്തിൽ മുങ്ങിത്താണ ജനതയ്ക്ക് ഒരു സഹായവും ചെയ്യാത്ത ഗവൺമെന്റാണ് കേരള ത്തിലേത് പ്രളയാനന്തരം പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ലെന്നും ഈ ഗവ ജനങ്ങൾക്കു വേണ്ടി ഒന്നും ചെയ്തിട്ടി ല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ട് വ്യക്ത മാക്കി

കെ പി സി സി വർക്കിംഗ് പ്രസിഡണ്ടുമാർ മത്സരിക്കുന്ന തിൽ തടസ്സമില്ലെന്നും മുതിർന്ന് നേതാവ് ഉമ്മൻചാണ്ടി മത്സരി ക്കണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹ്മെന്നും മുല്ലപ്പള്ളി വെളി പ്പെടുത്തി ഉമ്മൻചാണ്ടി ലോകസ്ഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവന പാർട്ടി തീരുമാനമാണെന്ന് കെ പി സി സി പ്രചാരണ സമിതി തല വൻ കെ മുരളീധരൻ എം എൽ എ തിരുവനന്തപുരത്ത് പറഞ്ഞു ഉമ്മൻചാണ്ടി എവിടെ മത്സരിച്ചാലും വിജയിക്കും എവിടെയാണ് അദ്ദേഹം മത്സരിക്കുന്നതെന്ന കാര്യം അദ്ദേഹത്തോടു തന്നെ ചോദിക്കണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാ മെന്ന് എൽ ഡി എഫ് സ്വപ്നം കാണേണ്ടെന്നും സീറ്റുകൾ യു ഡി എഫ് തൂത്തുവാരുമെന്നും മുരളീധരൻ പറഞ്ഞു ശബരിമല തന്ത്രിയോട് ദേവസ്വം ബോർഡ് വിശദീകരണം ചോദിച്ചതിനെതിരായി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി ഹർജിക്കാരന് കേസിൽ ഇടപെടാൻ നിയമപരമായി അവകാശമി ല്ലെന്ന് കോടതി പറഞ്ഞു ബംഗളൂരു സ്വദേശിയാണ് ഹർജി നൽകിയത് ഹൈക്കോടതി ഉത്തരവിനെതിരെ കെ എസ് ആർ ടി സി നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും താൽക്കാ ലിക നിയമന കാലാവധി പെൻഷന് പരിഗണിക്കണമെന്ന ഉത്തര വിനെതിരെയാണ് കെ എസ് ആർ ടി സി ഫർജി നൽകിയത്

ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ സുഭാഷ് ചന്ദ്രബോസ് മ്യൂസിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു

സുഭാഷ് ചന്ദ്രബോസുമായും ഇന്ത്യൻ നാഷണൽ ആർമിയുമായും ബന്ധപ്പെട്ട നിരവധി ചരിത്ര വസ്തുക്കൾ മ്യൂസി യത്തിൽ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്

ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി ആരോപിച്ചു സെയ്ദ് ഷൂജക്കെതിരെ ഡൽഹി പൊലീസ് ഇന്ന് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ആരോപണം ഉന്നയിച്ച ഇയാൾക്കെതിരെ കേസെടുക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യ പ്പെട്ടിരുന്നു

ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തത്

ആഴ്ചകളായി പൊലീസ് നിരീക്ഷണ ത്തിലായിരുന്ന സംഘത്തെയാണ് പൊലീസ് കസ്റ്റഡിയിലെടുത്ത ത്

മോശം കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെച്ച കളി അല്പം മുമ്പ് പുനരാരംഭിച്ചു

കുൽദ്വീപ് യാദവ് നാലും മുഹമ്മദ് ഷമി മൂന്നും വിക്കറ്റ് നേടി

രഞ്ജി ട്രോഫി സെമി ഫൈനൽ മത്സരങ്ങൾക്ക് വയനാട്ടിൽ നാളെ തുടക്കമാകും കൃഷ്ണഗിരിയിലെ പുതിയ പിച്ചിലെ ആദ്യ മത്സരത്തിൽ കേരളം വിദർഭയെ നേരിടും

മലപ്പുറം തിരൂരങ്ങാടിയിൽ പരീക്ഷ എഴുതിയ കെ കെ സയ്യിദ് ഹാഷിർ എല്ലാവിഷയത്തിലും എ പ്ലസ് നേടി

കാഞ്ഞങ്ങാട് ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർസെക്കണ്ടറി സ്കൂളിൽ കാഞ്ഞങ്ങാട്ട് കാർഷിക വികസന ബാങ്കിന്റെ സഹാ യത്തോടെ ആവിഷ്കരിച്ച എഫ് എം റേഡിയോ സംവിധാനം നിലവിൽ വന്നു

കുട്ടിക ളുടെ സർഗവാസന പ്രോത്സാഹിപ്പിക്കുന്നതിനും അധ്യാപകർക്കും കുട്ടികൾക്കും ആശയവിനിമയം നടത്തുന്നതിനും ഇതുവഴി കഴി യുമെന്ന് അധികൃതർ പറഞ്ഞു

സ്വാതന്ത്യസമർ സേനാനിയും കവിയുമായിരുന്ന ലാല ലജ്പത്റായിയുടെ സ്മരണയിലാണ് ഭാരതീയ കാവ്യോ ത്സവം സംഘടിപ്പിക്കുന്നത് ഗോഹട്ടി കോട്ടൺ ഹിൽ യൂണിവേഴ്സിറ്റിയിലെ ഡോ പരി സ്മിത ബർദലേ ഉദ്ഘാടനം ചെയ്യും നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഫെബ്രുവരി അവ്സാനവാരത്തിലേക്ക് മാറ്റി ആക്രമണ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ പകർപ്പ് ലഭ്യമാ ക്കാൻ കഴിയില്ലെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ സത്യവാങ്മൂ ലത്തിന് മറുപടി നൽകുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെ ട്ടാണ് ദിലീപ് ഹർജി നൽകിയത്

ഭക്ഷ്യ മേഖല നേരിടുന്ന വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചകളും സെമിനാറുകളും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാര വാഹികൾ അറിയിച്ചു

കൈരളി ഇന്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവൽ കണ്ണൂരിൽ നാളെ തുടങ്ങും

ഗ്രാമപഞ്ചായത്ത്ംഗമായ കെ പി ജയേഷിന്റെ വീടിനു നേരെ പുലർച്ചെയാണ് ബോംബേറുണ്ടായ ത് പൊലീസ് അന്വേഷണം ആരംഭിച്ചു ലക്ഷദ്വീപിന്റെ ജനസാന്ദ്രത കൂടിയ നാല് ദ്വീപുകളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയുമായി ധാരണാപത്രം ഒപ്പു വെച്ചു ലക്ഷ ദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഫാറൂഖ് ഖാന്റെ സാന്നിദ്ധ്യത്തിൽ ദ്വീപ് ആരോഗ്യവകുപ്പ് മേധാവി ഡോ ഷംസുദ്ദീൻ ഇഖ്റ ഹോസ്പി റ്റൽ മാനേജ്മെന്റ് പ്രസിഡണ്ട് സി പി കുഞ്ഞു മുഹമ്മദ് എന്നിവ രാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്